തടയുന്ന നിയമം ഇളവ് വരുത്തിയ വിധി സുപ്രീംകോടതി പുനഃപരിശോധിക്കും

സംസ്ഥാന ഗവൺമെന്റ്

ഇന്ന് ലോക വയോജനദിനം

ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും മൽസരം വൈകുന്നേരം ഏഴിന് സൂറത്തിൽ

പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾ ക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമത്തിൽ ഇളവ് വരുത്തിയ വിധിയാണ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക ഈ നിയമപ്രകാരമുള്ള പരാതികളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ അറസ്റ്റോ വിചാരണയോ പാടുള്ളൂ എന്നായിരുന്നു സുപ്രീംകോടതി വിധി ഇതിനെതിരെ കേന്ദ്രഗവൺമെന്റ് നൽകിയ പുനഃപരിശോധന ഹർജിയാണ് അംഗീകരിക്കപ്പെട്ടത്

സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്തൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ ആകാശവാണിയോട്

അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ കക്ഷി രഹിതരും ഡമ്മി സ്ഥാനാർത്ഥികളും ഇന്നലെ പത്രിക നല്കിയിരുന്നു

വെള്ളിയാഴ്ചയാണ് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുക

വട്ടിയൂർക്കാവിൽ പത്തും കോന്നിയിൽ ഏഴും പേരാണ് പത്രിക നൽകിയിട്ടുള്ളത്

ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെയുള്ള കേസിന്റെ ഭാഗമായാണ് നടപടി ഇന്നലെയും ക്രൈംബ്രാഞ്ച് സംഘം നഗരസഭയിൽ പരിശോധന നടത്തിയിരുന്നു അതേസമയം മരട് ഫ്ളാറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഫ്ളാറ്റുടമകൾക്ക് രണ്ട് ദിവസത്തെ സമയം കൂടിയാണ് ബാക്കിയുള്ളത്

സംരംഭകരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സാധ്യവും ഫലപ്രദവുമായ വിവിധ പ്രൊജക്ടുകൾ നിക്ഷേപകർക്ക് മുന്നിൽ ഇതിലൂടെ അവതരിപ്പിക്കും

ഇതിന്റെ ആദ്യപ്ടിയായി ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സുരക്ഷിത ശബ്ദ ദിനമായി ആചരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്മന്ത്രി സി

വിദ്യാഭ്യാസ നിലവാരത്തിൽ എല്ലാ വിധത്തിലും മികച്ച പ്രകടനം കാഴ്ച വച്ചതാണ് കേരളത്തിന് പുരസ്കാരം നേടിക്കൊടുത്തത്

മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറുമായി ഇത് സംബന്ധിച്ച് ഇന്ന് കൂടിക്കാഴ്ച നടത്തും രാഹുൽഗാന്ധി എം

ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് വിഷയം ചർച്ച ചെയ്തു

എൻ

വയോജനങ്ങളെ ആദരിക്കുവാനും അവരുടെ പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടു വരുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്

ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങളിൽ വ്യോജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പു വരുത്തുന്നത്തിനുള്ള സാമൂഹിക പദ്ധതികൾ കൂടുതലായി ആവിഷ്ക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു

വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി പ്രബന്ധരചന മത്സരം പ്രസംഗ മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കും

രാത്രി ഏഴ് മണിക്കാണ് മൽസരം അഞ്ച് മൽസരങ്ങളുള്ള പരമ്പരയിലെ ഫൈനൽ മൽസരം ഇതേ വേദിയിൽ വെള്ളിയാഴ്ച നടക്കും

കനത്ത മഴയെ തുടർന്ന് ഒരു പന്ത് പോലും എറിയാൻ സാധിക്കാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു

ഇന്നലെ വരെയാണ് ആധാർ ബന്ധിപ്പിക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്ന സമയം

റേഷൻകടകൾ അക്ഷയകേന്ദ്രങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ആധാർ ബന്ധിപ്പിക്കാനുള്ള സൌകര്യം ലഭ്യമാണ് ഭാഗ്യക്കുറി കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ ചിലയിടങ്ങളിൽ എഴുത്ത് ലോട്ടറി നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ശിക്ഷാനടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ അറിയിച്ചു എഴുത്ത് ലോട്ടറിയോ ലോട്ടറിയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ശ്രദ്ധയിൽപെട്ടാൽ പൊതുജനങ്ങൾ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കണം

ഗാന്ധിപ്രതിമയിൽ പുഷ്പാർച്ചന സെമിനാർ ശുപ്പിത്വ ബോധവൽക്കരണം എന്നിവ ചടങ്ങിനോടനുബന്ധിച്ച് നടിക്കും

ഇത്തരത്തിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അന്നുറാണി